ശബരിമലയിലെ നിരോധനാജ്ഞ നാല് ദിവസത്തേക്ക് കൂടി നീട്ടി പ്രളയകാലത്ത് ഒരുമിച്ചതുപോലെ കേരള പുനർനിർമാണ ത്തിലും ജനത ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകൾ ഉടൻ പുനസം ഘടിപ്പിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഇന്ന് കണ്ണൂരിൽ തുട ങ്ങും ഇന്ത്യയുടെ മേരികോം ലോക വനിതാബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ

രാജ്യത്തെ സിഎൻജി വാഹന ഇന്ധന പമ്പുകളുടെ എണ്ണം പതിനായിരം ആക്കി വർധിപ്പിക്കാനും പദ്ധതിയിൽ ലക്ഷ്യമിടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ വീഡിയോ കോൺഫ്രൻസിംഗി ലൂടെ രാജ്യവ്യാപകമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചു അന്തരീക്ഷ മലിനീകരണത്തിന് എതിരായ രാജ്യത്തിന്റെ സുപ്രധാന കാൽവെ യ്പ്പാണിതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യം വാതകാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങു കയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പ്രകൃതിവാതകം പൈപ്പിലൂടെ വീട്ടിലെത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയിൽ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ കണ്ണൂർ കാസർകോട് മാഹി എന്നിവിടങ്ങളിലെ നിർമാണോദ്ഘാ ടനവും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ വിജ്ഞാൻഭവനിൽ നിർവ ഹിച്ചു ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് പദ്ധതി യിലെ ടെൻഡർ നടപടികളും ഇതോടൊപ്പം തുടങ്ങും മലപ്പു റത്തും കോഴിക്കോട്ടും സിറ്റിഗ്യാസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാ ടനവും സംഘടിപ്പിച്ചിരുന്നു ശബരിമലയിലെ നിരോധനാജ്ഞ ൻാല് ദിവസത്തേക്ക് കൂടി നീട്ടി

നിരോധ്നാജ്ഞയുണ്ടെങ്കിലും ഭക്തർക്ക് ഒറ്റക്കോ കൂട്ടായോ ദർശനത്തിനെത്താനും ശരണം വിളിക്കാനും വിലക്കില്ല ശബരി മലയിലെയും സന്നിധാനത്തെയും നിരോധനാജ്ഞക്കെതിരായ ഹർജികളിൽ ഇന്ന് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടായേക്കും ശബരിമല തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷം പതിനേഴ് കേസുകൾ പൊലീസ് രജിസ്റ്റർ ചെയ്തു

പ്രളയകാലത്ത് ഒരുമിച്ചതുപോലെ കേരള പുനർനിർമാണ ത്തിലും സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ആവശ്യപ്പെട്ടു ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദേശിച്ചു തിരുവനന്തപുരത്ത് റൈസിംഗ് കേരള കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ അതിജീവനത്തിന് പണം പ്രശ്നമാവില്ലെന്നും ആ കരുത്ത് വരും ദിവസങ്ങളിൽ കാണാനാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തവേളയിൽ യുവജനങ്ങളുടെ ഇടപെടൽ വളരെ വലു തായിരുന്നു പ്രതിസന്ധിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ യുവ ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നത് കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാ ണെന്ന് വൃക്തമാക്കുന്നതായി മുഖ്യമന്ത്രി വിലയിരുത്തി കേരളത്തെ പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ ചില ശക്തികൾ നടത്തുന്ന നീക്കത്തെ ഗൌരവമായി കാണണമെന്നും മൂഖ്യമന്ത്രി ആവശ്യപ്പെ ട്ടു സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകൾ ഉടൻ പുനഃസംഘ ടിപ്പിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ അറിയിച്ചു

ശേഷിക്കുന്ന മേഖലകളിൽ പടിപടിയായി പരിഷ്ക രണം കൊണ്ടുവരുമെന്നും മന്ത്രി വെളിപ്പെടുത്തി തിരുവനന്തപു രത്ത് ട്രേഡ് യൂണിയൻ സംഘടനാ നേതാക്കളുടെ സംസ്ഥാനതല യോഗത്തിനു ശ്രേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് തീരുമാന ങ്ങൾക്ക് തൊഴിലാളി യൂണിയനുകൾ പൂർണ പിന്തുണ അറിയിച്ച തായും മന്ത്രി പറ്റഞ്ഞു

ശാസ്ത്രമേള ഗണിതശാസ്ത്രമേള സാമൂഹ്യശാസ്ത്രമേള പ്രവൃ ത്തിപരിചയമേള ഐടി മേള എന്നീ വിഭാഗങ്ങളിലായി അയ്യായിര ത്തോളം പേർ പങ്കെടുക്കും ഇന്ന് രാവിലെ കണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും പ്രളയക്കെടുതിയെ തുടർന്ന് ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ഒഴിവാക്കി കുടുംബശ്രീ കോഴിക്കോട്ട് തുടങ്ങുന്ന ആദ്യ സ്ത്രീസൌഹൃദ മഹിളാ മാൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രാദേശിക സാമ്പത്തിക വികസനവും സ്ത്രീ ശാക്തീക രണവും ലക്ഷ്യമാക്കി ഉൽപാദന വിപണന സാധൃതകൾ പ്രയോ ജനപ്പെടുത്തിയാണ് സ്ത്രീസൌഹൃദമാൾ പ്രവർത്തനം തുടങ്ങുന്ന ത് ചടങ്ങിൽ ഫാമിലി കൌൺസിലിംഗ് സെന്റർ മ്മെക്രോബസാർ കിച്ചൺ മാർട്ട് മിനി സൂപ്പർമാർക്കറ്റ് കള്ഫ് റ്സ്റ്റോറന്റ് പരിശീല നകേന്ദ്രം എന്നിവ മന്ത്രിമാർ ഉദ്ഘാട്ടനം ചെയ്യും വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽപ്പൽക്കരണം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ആവുകയാണ് ഗ്വ ന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പ്രൊഫ

അടുത്ത വിദ്യാഭ്യാസ വർഷ ത്തിന് മുമ്പ് ഇതു നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു വൈപ്പിൻ നിയോജകമണ്ഡലത്തിലെ വെളിച്ചും സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ എട്ടാം പ്പർഷ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം

നന്തിയാട്ട്കുന്നം ഗാന്ധിസ്മാരക സഹകരണബാങ്കിന്റെ തെക്കൈവഴി പ്രഭാതസായാഹ്ന ശാഖ മറ്റൊരു ചടങ്ങിൽ മന്ത്രി ഉദ്ഘാ ടനം ചെയ്തു സിപിഐഎം സംസ്ഥാനസ്മിതി യോഗം ഇന്ന് തിരുവനന്ത പുരത്ത് ചേരും ശബരിമല വിഷയത്തിൽ ആർഎസ്എസ് ബിജെ പി കോൺഗ്രസ് സമരങ്ങൾക്കെതിരെ രണ്ടാംഘട്ട പ്രചാരണത്തിന് സമിതി രൂപം നൽകിയേക്കും പി കെ ശശി എം എൽഎക്കെതി രായ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പരിഗണിച്ചേക്കും ഇന്ത്യയുടെ മേരികോം ലോകവനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്തി

ഇതോടെ വനിതാ ബോക്സിംഗിൽ ആറാം സ്വർണമെന്ന ചരിത്ര നേട്ടത്തോടടുക്കുകയാണ് മേരികോം

ആദ്യ കളിയിൽ തോറ്റ ഇന്ത്യക്ക് പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ ജയ്ം അനിവാര്യമാണ്

ഇതോടെ ഗ്രൂപ്പ് ബി യില്ല് മൂന്ന് കളികൾ പൂർത്തിയാക്കിയ കേരളം പതി മൂന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് ബംഗാൾ ആറ് പോയിന്റുമായി രണ്ടാമതാണ്

വടകരയിൽ കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും

വടകര വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന് അവധി യായിരിക്കുമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു ഹയർ സെക്കന്ററി വി എച്ച് എസ് ഇ സ്കൂളുകൾക്കും അവധി ബാധകമാ യിരിക്കും

ഹൈസ്കൂൾ വിഭാഗത്തിൽ ആലപ്പുഴ ഉപജില്ലയും ഹയർ സെക്കൻറി വിഭാഗത്തിൽ കായംകുളം ഉപജില്ലയും ജേതാക്കളായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വൈക്കുട്ടിഷ്ടമി ഉത്സവ ത്തിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിന്ന് പട്ടികജാതിക്കാരനായ മേൽശാന്തിയെ ഒഴിവാക്കിയ നടപടി റദ്ദാക്കാ്ൻ മന്ത്രീ കടകംപളളി സുരേന്ദ്രൻ നിർദേശം നൽകി പ്രസാദവിതരണ ചുമതലയിൽ നിന്ന് ജീവൻ എന്ന ജീവനക്കാരനെയാണ് ഒഴിവാക്കിയത് തിരുവിതാംകൂർ ദേവസ്വംബോർഡിൽ മേൽശാന്തിയായി നിയ മനം ലഭിച്ച ആറ് പട്ടികജാതിക്കാരിൽ ഉൾപ്പെട്ടയാളാണ് ഇദ്ദേഹം ആലപ്പുഴ ചക്കുളത്തുകാവിലെ പൊങ്കാല ഇന്ന്

പൊങ്കാലയോടനുബന്ധിച്ച് തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര് കുട്ടനാട് താലൂക്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചു

ആലപ്പുഴയിലെ ആകാശവാണി എഫ് എം നിലയം ഉടൻ പ്രവർത്തന സജ്ജമാക്കി പ്രക്ഷേപണം ആരംഭിക്കണമെന്ന് അഖി ലകേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മറ്റി ആവശ്യപ്പെട്ടു പെരുമ്പാവൂരിൽ ചേർന്ന യോഗത്തിൽ പ്രസി ഡന്റ് മൊയ്തീൻകുഞ്ഞ് തൃക്കാക്കര അധ്യക്ഷനായിരുന്നു പുന്നപ്ര വയലാർ സമരസേനാനി സി കെ കരുണാകരൻ അന്ത രിച്ചു

സംസ്കാരം ഇന്ന് വൈകീട്ട് അഞ്ചിന് ചേർത്തല മുഹമ്മയിലെ വീട്ടുവളപ്പിൽ നടക്കൂട് നീലകുറിഞ്ഞി സീസണിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിര ത്തിൽ പരം വിനോദസഞ്ചാരികൾ രാജമലസന്ദർശിച്ചു കുറിഞ്ഞി സീസൺ അവസാനിച്ചെങ്കിലും ഇപ്പോഴും സഞ്ചാരികളുടെ വരവ് തുടരുകയാണ് പ്രളയത്തെ തുടർന്ന് രാജമലയിലെത്താൻ കഴി യാതിരുന്ന സഞ്ചാരികൾക്ക് ട്ടിക്കറ്റ് പുതുക്കി നൽകാൻ നടപടി ആരംഭിച്ചതായി മൂന്നാർ വൈൽഡ് ്ലൈഫ് വാർഡൻ അറിയിച്ചു

തിരുവനന്തപുരത്ത് മന്ത്രി കടകംപളളി സുരേ ന്ദ്രനിൽ നിന്ന് ആശുപത്രി ഡയറക്ടറും ജനറൽമാനേജരും ചേർന്ന് അവാർഡ് സ്വീകരിച്ചു